രണ്ടാംഘട്ട കോവിഡ് പ്രതിരോധകുത്തിവെപ്പിന് കേരളം സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ

ഐഎസ്എല്ലിൽ ഇന്ന് രണ്ട് മത്സിരൂങ്ങൾ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റ്യിനെയും ഗോവ എ

കെ ബഗാനെയും നേരിടും

ഇത് ഏക ഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിന് മനോഹാരിത നൽകുന്ന ചരിത്രനിമിഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് രാജ്യത്തിന്റെ എട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരൊറ്റ ഇടത്തേക്ക് ട്രെയിൻ സർവ്വീസ് നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഇത് ഇന്ത്യൻ റെയിൽവേയുടേയും സർദാർ വല്ലഭായ് പട്ടേലിന്റേയും കാഴ്ചപ്പാടുകളുടെ സംയോജനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

രാജ്യത്തെ ആദ്യ ഹരിത കെട്ടിട സെർട്ടിഫിക്കേഷൻ ലഭിച്ച സ്റ്റേഷനാണ് കേവാദിയ

ഈ നഗരങ്ങളിലെ പരിസ്ഥിതി സൌഹൃദ പൊതുജന ഗതാഗത സംവിധാനത്തിന് പദ്ധതികൾ ഊർജ്ജം പകരും

പ്രാരംഭ് സ്റ്റാർട്ട് അപ്പ് ഇന്ത്യ അന്താരാഷ്ട്ര ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കൊറോണ കാലഘട്ടത്തിൽ സാനിറ്റൈസർ പി

ഇ കിറ്റുകൾ അനുബന്ധ വസ്തുക്കൾ എന്നിവയുടെ ഉല്പാദനത്തിൽ സ്റ്റാർട്ട് അപ്പുകൾ നിർണ്ണായക പങ്ക് വഹിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പങ്കെടുത്ത റവന്യൂ സെക്രട്ടറി എം എസ് മനിവണ്ണനാണ് ഇക്കാര്യം അറിയിച്ചത്

കോഴിയിറച്ചി മുട്ട തുടങ്ങിയ ഉല്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ക്ടിപ്പില സംസ്ഥാനങ്ങളുടെ തീരുമാനം പുനപരിശോധിക്കണമെന്നു് മന്ത്രാലയം ആവശ്യപ്പെട്ടു നന്നായി വേവിച്ച കോഴിയിറച്ചിയ്ക്കും മുട്ടയും സുരക്ഷിതമാണെന്നും അശാസ്ത്രീയമായ പ്രചാരണ്ട്ങ്ങൾ ് ജനങ്ങൾ വിശ്വസിക്കരുതെന്നും മന്ത്രാലായം വ്യക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീ ൃശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാർ ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തി അധീകൃതരെ വിവരമറിയിക്കുകയായിരുന്നു

പ്രതിരോധ കുത്തിവയ്പ്പിനു ശേഷം എന്തെങ്കിലും അസ്വസ്ഥതകൾ മൂലം ആശുപത്രിയിൽ പ്രവേശിച്ച കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രലയം അറിയിച്ചു ആദ്യ ഘട്ടത്തിൽ മൂന്ന് കോടി പേർക്ക് ഇന്ത്യ കുത്തിവയ്പ്പ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്തമാക്കി

കേരളത്തിൽഏറ്റവും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ്

കോവിഡ് വാക്സിൻ രണ്ടാംഘട്ട കുത്തിവെപ്പിനും കേരളം സജ്ജമാണെന്ന് മന്ത്രി കെകെ ശൈലജ പറഞ്ഞു രണ്ടാംഘട്ടത്തിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായെന്നും കൂടുതൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കി വരുന്നതായും മന്ത്രി വൃക്തമാക്കി

പി നേതാവ് കെ

ഗോവയും എ